തുടങ്ങി

ഉപരാഷ്ട്രപതി എം

പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി

ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും നേർക്കുനേർ

കേന്ദ്രമന്ത്രിമാരായ രാധാമോഹൻസിംഗ് ഹർഷവർധൻ മേനകാ ഗാന്ധി നരേന്ദ്രസിംഗ് തോമർ കൃഷ്ണൻപാൽ ഗുർജാർ റാവോ ഇന്ദ്രജിത് സിംഗ് എന്നിവരും ഗൌതംഗംഭൂർ മനോജ് തിവാരി ഷീലദീക്ഷിത് ജ്യോതി രാദിത്യ സിന്ധ്യ വിജേന്ദർ സിംഗ് ഭൂപീന്ദർ സിംഗ്ഹൂഡ അഖിലേഷ് യാദവ് തുടങ്ങിയ പ്രമുഖരും ഇന്ന് ജനവിധി തേടുന്നവരിൽ ഉൾപ്പെടുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി ്യന്റെന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ ഖുഷിനഗറിലും ദിയോക്യില്ലും മധ്യപ്രദേശിലെ ഖണ്ഡ്വായിലും ഇൻഡോറിലും തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും

പി അധ്യക്ഷ മായാവതി പഞ്ചാബിലെ ഷഹീദ് ഭഗത്സിംഗ് നഗറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും

പി ബി

പി പാർട്ടികൾക്കെതിരെ വിമർശനവുമായി മുതിർന്ന ബി

പി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ശ്രീ നരേന്ദ്രമോദി വിമർശനവുമായി രംഗത്തെത്തിയത് പ്രതിപക്ഷ പാർട്ടികളുടെ ഭരണത്തിൻകീഴിൽ കർഷകരും പാവപ്പെട്ടവരും യാതന അനുഭവിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു

ജെ പി വീണ്ടും അധികാരത്തിൽ എത്തിയാൽ ജലസേചനുവമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക മന്ത്രാലയം ആരംഭിക്കും എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ജലം എന്നിവ എത്തിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

യും ആർ

എസും പ്രധാനമന്ത്രി നരേന്ദ്രമോദ്രിയും തന്റെ കുടുംബത്തെ നിരന്തരം ആക്രമിക്കുകയാണെന്ന് ആരോപിച്ചു

ജെ പി യിൽ ചേർന്നു

എൽ

കൂടുതൽ ഭീകരർ പ്രദേശ്ത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് സുരക്ഷാ സേനയുടെ നിഗമനം പ്രദ്യേശത്ത് ഇപ്പോഴും വെടിവയ്പ് തുടരുകയാണ്

ഇന്നലെ വിയറ്റ്നാം പ്രധാനമന്ത്രി സുവാൻ ഫുക്കുമായി ഹനോയിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരുരാജൃങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വ്യാപിപ്പിക്കാനും മേഖലയിലെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാൻ നേതാക്കൾ തമ്മിൽ നടന്ന ചർച്ചയിൽ ധാരണയായി ഇന്ത്യയിൽ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ ഉൽപന്നങ്ങൾ വിയറ്റ്നാം വിപണിയിൽ എത്തിക്കാൻ അനുമതി നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ശ്രീ വെങ്കയ്യ നായിഡു വിയറ്റ്നാം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു മികച്ച നിലവാരത്തിലുള്ള മരുന്നുകളും ആരോഗ്യ സംരക്ഷണ ഉൽപന്നങ്ങളും മിതമായ വിലയ്ക്ക് ഇന്ത്യൻ കമ്പനികൾ വിയറ്റ്നാമിന് നൽകുമെന്ന് ഉപരാഷ്ട്രപതി ഉറപ്പ് നൽകി ഇന്ന് യു എന്നിന്റെ പ്രത്യേക പരിപാടിയിലും ഉപരാഷ്ട്രപതി മുഖ്യപ്രഭാഷണം നടത്തും

എസ് എൽ

ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള ഐ

എസ് ആർ

രണ്ട് ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയ്ക്കാണ് ഇന്ന് തുടക്കമാകുന്നത്

ഒ യുടെ നാല് കേന്ദ്രങ്ങളിലായാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്

എസ് ആർ ഒ ചെയർമാൻ കെ ശിവൻ ഇന്ന് ബംഗ്ളുരൂവിൽ ഇന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യും

മുൻകേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ മകൻ കാർത്തിചിദംബരവും കേസിൽ കുറ്റാരോപിതനാണ്

എക്സ് മീഡിയ കമ്പനിയുടെ വിദേശനിക്ഷേപവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തറിയാതിരിക്കാൻ കാർത്തിചിദംബരം ഒരു ദശലക്ഷം ഡോളർ തനിക്കും ഭർത്താവ് പീറ്റർ മുഖർജിക്കും വാഗ്ദാനം ചെയ്തതായി ഇന്ദ്രാണി മുഖർജി ആരോപിച്ചിരുന്നു

ബംഗ്ളൂരുവിൽ ബീസ്ക് ഹൈദരാബാദിലേയക്ക് പോകുകയായിരുന്ന ടൂറിസ്റ്റ് ബസാണ് അപകടത്തിൽപെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തിരികെ പോകുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപെട്ടത്

ഭീകരവാദ സംഘടനകളായ ജയ്ഷേ ഇ മുഹമ്മദ് ജമാ അത്ത് ഉദ്വ മുംബൈ ആക്രമണത്തിന്റെ മുഖ്യസൂത്രധാരൻ ഹാഫിസ് സയ്ദിന്റെ ഫലാ ഇ ഇൻസാനിയത് ഫൌണ്ടേഷൻ എന്നിവയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി

വോയ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇത് എട്ടാം തവണയാണ് ഐപിഎൽ ക്രിക്കറ്റിന്റെ ഫൈനലിൽ എത്തുന്നത്

അന്ന് മുംബൈയ്ക്കായിരുന്നു ജയം

ആദ്യകാളിഫയറിൽ ചെന്നൈയെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസവുമായാണ് മുംബൈ ഇന്ന് മത്സരത്തിനിറങ്ങുന്നത് രണ്ടാം കാളിഫയറിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ആറു വിക്കറ്റിന് തോൽപ്പിച്ചാണ് ചെന്നൈ മുംബൈയ്ക്കെതിരായ കലാശപ്പോരിന് യോഗ്യത നേടിയത് ധോണിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ചെന്നൈ സൂപ്പർകിങ്സിന് ഏതുമത്സരവും തങ്ങൾക്കനുകൂലമാക്കാനുള്ള കഴിവുണ്ട് ഇന്ന് ഹൈദരാബാദിൽ രാജീവ്ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം നടക്കുന്നത്

എഴുന്നള്ളിപ്പ് ശ്രീമൂലസ്ഥാനത്ത് എത്തുമ്പോൾ ആകും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റുക എച്ചുന്നള്ളിപ്പിൽ ആനയുടെ പത്തു മീറ്റർ അകലത്തിൽ മാത്രമേ ്ആളു്കൾ നിൽക്കാവൂ എന്ന് നിർദ്ദേശമുണ്ട്

ഇത്തവണ പൂരത്തിന് കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്